മുന്നോട്ടുപോകുമെന്നും സ്ഥലം ഏറ്റെടുത്തിൽ അപാകതയില്ലെന്നും മന്ത്രി ജി സുധാകരൻ സ്ഥലം നൽകിയവർക്ക് അർഹമായ നഷ്ടപ്പൂരിഹാരം ലഭൃമാക്കാൻ കേന്ദ്രത്തിനുമേൽ സ്മ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്ണെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ലൈസൻസും ലഭ്യമാക്കുമെന്നു് മന്ത്രി ഇ

ജയരാജൻ

പരിശോധന കർശനമാക്കുമെന്ന് മന്ത്രി തോമസ് ഐസക്

വിമാനത്താവളം വൻ പുരോഗതി ഉണ്ടാക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ വി തുളസീദാസ് പറഞ്ഞു റിസർവ് ബാങ്ക് പുതിയ വായ്പാ നിരക്ക് പ്രഖ്യാപിച്ചു

റിപ്പോ നിരക്കിൽ കാൽ ശതമാനം കുറവ്

രഞ്ജി ട്രോഫി കിരീടം വിദർഭ നിലനിർത്തി

സുധാകരൻ നിയമസഭയിൽ പറഞ്ഞു പാതയുടെ വികസനത്തിന് ശാസ്ത്രീയമായിട്ടു തന്നെയാണ് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് ചിലയിടങ്ങളിൽ നിർമാണം ആരംഭിച്ചു സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം ചെലവിൽ ചിലയിടങ്ങളിൽ പാലങ്ങളും നിർമിച്ചിട്ടുണ്ട് പദ്ധതിയ്ക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ചു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തണുപ്പൻ നയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ പാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശ്യങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വി

സതീശന്റെ അടിയത്ത്രി പ്ര്യമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ഏറ്റെടുക്കുക്കുക് ഭൂമിക്കുള്ള നഷ്ടപരിഹാരം നല്ല രീതിയിലാണ് ലഭിക്കുന്നതെന്നും ്മ്ന്ത്രി പറഞ്ഞു സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പ്രദേശവാസിക്ർ പരിഭ്രാന്തിയിലാണെന്ന് പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് പിഡി

സതീശൻ പറഞ്ഞു സ്ഥലമേറ്റെടുക്കുമ്പോൾ നൃായവില ലഭൃമാക്കാൻ സംസ്ഥാനം ഇപ്പോഴും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ സ്ഥലവില കൂടുതലാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ യോജിച്ചുകൊണ്ടുള്ള സമ്മർദ്ദം ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പദ്ധതിക്കെതിരെ ബോധപൂർവ്വമായ കുപ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കൊച്ചി മെട്രോ മാതൃകയിൽ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ജയരാജൻ സഭ സംസ്ഥാനത്ത് വ്യവസായം തുടങ്ങാൻ ലക്ഷ്യമിടുന്നവർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ലൈസൻസ് നൽകുമെന്ന് മന്ത്രി ഇ

അപേക്ഷയിൽ ഒരു മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയില്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതായി കമ്പനികൾക്ക് കണക്കാക്കാം

ഇപ്പോഴത്തെ സഭ സമ്മേളനം പൂർത്തിയാക്കുന്നതിനുള്ളിൽ ഇതിനുള്ള് നടപടികൾ ഉണ്ടാകും

പാലക്കാട് കോച്ച് ഫാക്ടറി കേന്ദ്രി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ആ സ്ഥലം ഏറ്റെടുത്ത് കൂടുതൽ വൃവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു തോമസ് ഐസക് സംസ്ഥാനത്തെ നികുതി ചോർച്ച തടയുന്നതിന് പരിശോധന ശക്തമാക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞു ഇ വെ ബിൽ പരിശോധന കാര്യക്ഷമമാക്കും സ്കാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കും

സംസ്ഥാനത്തിന്റെ പൊതുകടം വർദ്ധിച്ചിട്ടില്ല

നികുതി പിരിവിൽ പത്ത് ശതമാനം കുറവുണ്ടായെന്ന പ്രതിപക്ഷ ആരോപണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു

വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

തുളസീദാസ് പറഞ്ഞു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കണ്ണൂരിൽ സംഘടിപ്പിച്ച ടൂറിസം ഫ്രട്ടേണിറ്റി മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വടക്കൻ കേരളത്തിനെ കേരളാ ടൂറിസം കൂടുതൽ പ്രാധാന്യം കൊടുത്തുവരുകയാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത ടൂറിസം സെക്രട്ടറി റാണി ജോർജ് പറഞ്ഞു

റിസർവ് ബാങ്ക് ഗവർണറായി ശക്തികാന്ത ദാസ് ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ ധന നയ അവലോകന യോഗമാണ് ചേർന്നത്

യായി എം

ദിനേശ് ചുമതലയേറ്റു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ടോമിൻ തച്ചങ്കരിയെ മാറ്റി എം

പാനൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ജോലി നഷ്ടമായ കെ എസ് ആർ ടി സി

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്നിന്നുള്ളവരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്

ദിവസവും ഒരാളെങ്കിലും റോഡ് അപകടങ്ങളിൽ മരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ

വിദർഭ തുടർച്ചയായ രണ്ടാം തവണയാണ് കിരീടം സ്വന്തമാക്കുന്നത് കൊല്ലം വനിത ഹോക്കി കൊല്ലത്തു നടക്കുന്ന ദേശീയ ജൂനിയർ വനിത ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ എ യിൽ ജാർഖണ്ഡും ഉത്തർപ്രദേശും സെമിയിൽ

പട്ടണ പ്രദക്ഷിണ ഘോഷയാത്രയിൽ വൻ ജനാവലി അണിചേർന്നു ഉത്സവദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും കെ

ടി

ഉറൂസ് ഉത്സവത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി നൽകി

വൈകിട്ട് ആറിന് സമ്മേളനം മന്ത്രി ഇ

ഇരുന്നൂറോളം പ്രദർശന വിപണന സ്റ്റാളുകൾ മേളയിലൊരുങ്ങുന്നു കന്നുകാലി പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും

ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു

ഗുരുതര രോഗം പിട്ടിപെട്ടവർക്ക് കഴിഞ്ഞ മാസം വരെ കരുണ്യ ബനവലന്റ് ഫണ്ട് പ്ളൂതി പ്രകാരമാണ് ചികിത്സാ സഹായം നൽകിയതെന്നും അദ്ദേഹം പ്റഞ്ഞു വി കെയർ പദ്ധതി അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അനന്തുവിന്റെ പാരാലിംപിക്സിൽ പങ്കെടുക്കുകയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൃത്രിമ കാലുകൾ നൽകി

അനന്തുവിന്റെ കൂടപ്പനക്കുന്ന് ജയപ്രകാശ് ലൈനിലെ വീട്ടിലെത്തി മന്ത്രി കെ

ശൈലജ ഉപകരണം കൈമാറി